പുനഃരാരംഭിച്ചു ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസ് പരിഗണിക്കുന്നത് ജനുവരി ആറിലേക്ക് മാറ്റി

ആദ്യ പോരാട്ടത്തിന് ഗോകുലം കേരള എഫ് സി ഇന്ന് കളത്തിലിറങ്ങും

ഉച്ചക്ക് ശേഷമാണ് ത്രികക്ഷി മന്ത്രിസഭയുടെ വിശ്വാസ വോട്ടെടുപ്പ്

സി പി എം എൽ എ ദിലീപ് വാൽസെ പാട്ടീലിനെ താൽക്കാലിക സ്പീക്കറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്

ഡിസംബർ മൂന്നിനകം ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ഭഗത് സിങ് കോഷിയാരി ഉദ്ധവ് താക്കറെയ്ക്ക് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് നേരത്തെയാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയായിരുന്നു

സി

വോട്ടെടുപ്പ് വൈകിട്ട് മൂന്നിന് അവസാനിക്കും ഛത്ര പലാമു ഗുംല ഗർഹ ലെറ്റഹർ ലൊഹദഹ എന്നീ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്

പ്രതിപക്ഷ സഖ്യ കക്ഷികളായ ജെ എം എം കോൺഗ്രസ്സ് ആർ

മത്സര രംഗത്ത്

പി പ്രഗ്യ താക്കൂർ ലോക്സഭാ സ്പീക്കർക്ക് അവ്വകാശ ലംഘന നോട്ടീസ് നൽകി

ഭീകരപ്രവർത്തക എന്നു പ്പിളിച്ചത് അവകാശ ലംഘനമാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാ്ണിക്ക്ുന്നു

രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നും നോട്ടീസ് ആവശ്യപ്പെടുന്നു

വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ച വെച്ച കേഡറ്റുകൾക്ക് നാവിക സേനാ മേധാവി മെഡലുകൾ സമ്മാനിച്ചു

എട്ട് പ്രതികൾ ഹാജരായി നടൻ ദിലീപ് വിദേശത്തായതിനാൽ കോടതിയിൽ ഹാജരായില്ല കേസ് ഡിസംബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും

കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് ജില്ല സെ കോടതിയിൽ ഹാജരായി ജാമ്യാപേക്ഷ സമർപ്പിച്ചു കേസ് പാലാ കോടതിയിൽ നിന്ന് കോട്ടയം അഡീഷണൽ ജില്ല സെഷൻസ് കോടതിയിലേക്ക് വിചാരണക്കായി മാറ്റിയിരുന്നു കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിനെ തുടർന്നാണ് ഫ്രാങ്കോ മുളക്കൽ ജലന്ധറിൽ നിന്ന് കോട്ടയത്തെത്തിയത്

സി മൊയ്തീൻ സാമൂഹികക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കാതിരിക്കാനും പെൻഷൻ തുക വർധിപ്പിക്കുന്നതിനുമാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി എ

പാലക്കാട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഐ

ഒ പ്രഖ്യാപനവും ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ബാലൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ഏ

ബാലന്റെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും സിനിമാ ടിക്കറ്റുകളിലെ അധിക്കുന്നീകുതി ലൊക്കേഷനുകളിലെ മരുന്ന് ഉപയോഗം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ലഹരി സിനിമാരംഗത്തെ സംഘടനകളു്മായി ്മന്ത്രി ചർച്ച ചെയ്യും

ഒരാളെ രക്ഷപ്പെടുത്തി തൃപ്പൂണിത്തുറ സ്വദേശി ബെന്നിജോർജ് ഭാര്യ ഷീല എന്നിവരാണ് മരിച്ചത്

കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനാപകടം തൃശൂർ പെരിഞ്ഞനം പഞ്ചായത്ത് ഔഫീസിന് സമീപം ദേശീയ പാതയിൽ സ്കൂട്ടറിൽ അജ്ഞാത വാഹ്ന്നമീടിച്ച് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ട് പേർ മരിച്ചു ആലുവ സ്ട്രദേശികളായ പയ്യേപ്പുള്ളി വീട്ടിൽ അജീഷിന്റെ മകൻ ശ്രീമോൻ ദിൽജിത്ത് എന്നിവരാണ് മരിച്ചത്

അറബിക്കടലിൽ ശ്രീലങ്കൻ തീരത്ത് രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഗതി മാറി കേരളതീരത്തേക്ക് വീശുകയായിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകളിലാണ് ഓഖി കൂടുതൽ നാശം വിതച്ചത്

കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിനാണ് കിക്കോഫ് ഇന്ന് ഗോകുലം കേരള എഫ് സി നെരോക്ക എഫ്

ഇന്ന് നടക്കുന്ന മറ്റൊരു മൽസരത്തിൽ ഐസോൾ എഫ്

പഞ്ചായത്ത് പരിധിയിലെ ഒമ്പത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം ഗോത്ര വിദ്യാർത്ഥികളാണ് കായിക മേളയിൽ പങ്കെടുത്തത്

ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും അന്തർദേശീയ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും തെളിവെടുപ്പ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂൾ അഞ്ചാം ക്ലാസ്സ് വിദ്യാർത്ഥി ഷഹല ഷെറിൻ ക്ലാസ്സ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങി ചെയർമാൻ പി